കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും

വായുചുഴലിക്കാറ്റ് അതി തീവ്ര ചുഴലിക്കാറ്റായി മാറി നാളെ പുലർച്ചെയോടെ ഗുജറാത്ത് തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്

കേരളത്തിൽ നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ക്രാസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം മത്സരത്തിന് മഴ ഭീഷണി

പുതിയ മന്ത്രിസഭ രൂപീകരിച്ച ശേഷമുള്ള ആദൃ യോഗമാണ് ഇത് ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനത്തിന് പദ്ധതികളും രൂപരേഖയും തയ്യാറാക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരേയും കാണുക കഴിഞ്ഞദിവസം കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

അപകടം നടന്ന സ്ഥലത്ത് ഹെലികോപ്ടർ ലാന്റ് ചെന്നതിനോ കയർമുഖാന്തിരം ഇറങ്ങുന്നതിനോ അനുയോജ്യമായ സ്ഥലമാണ് ആദ്യംകണ്ടെത്തുക എന്ന് സിയാങ് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ രാജീവ് തക്കുക് അറിയിച്ചു നിബിഡ വനങ്ങളും ചെങ്കുത്തായ മലനിരകളും ഉള്ള സ്ഥലത്താണ് വിമാനം തകർന്ന് വീണത്

ഈ മാസംമൂന്നാം തീയതി അസ്സമിലെ ജോർഹട്ടിൽ നിന്ന് മെൻചുക അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൌണ്ടിലേക്ക് പുറപ്പെട്ട വിമാനമാണ് കാണാതായത് പറന്നുയർന്ന് അരമണിക്കൂറിനകം വിമാനവുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു

ഇവരിൽ മൂന്ന് പേർ മലയാളികളാണ്

ചുഴലിക്കാറ്റ് നാളെ പുലർച്ചയോടെ ഗുജറാത്ത് തീരത്ത് എത്തുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ ്ത്രീരമേഖലകളിൽ അതീവജാഗ്രതയാണ് പുലർത്തുന്നത്

നാളെ പുലർച്ചെയോടു കൂടി ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരം കടക്കുമെന്ന് കാലാവസ്ഥാ നീരീക്ഷണകേന്ദ്രം അറിയിച്ചു

കരയ്ക്കടുക്കുന്ന വായു ചുഴലിക്കാറ്റ് താഴ്ന്ന തീര പ്രദേശങ്ങളായ കച്ച് ദേവ്ഭൂമി ദാരക പോർബന്ദർ ജൂനഗർ ദിയു ഗിർസോമനാഥ് അംറേലി ഭാവ്നഗർ ജില്ലകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് സൌരാഷ്ട്ര തെക്കൻ ഗൂജറാത്ത് ദാമൻ ദിയു ദാദ്ര നാഗർഹവേലി എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്

സംസ്ഥാന ദുരന്ത നിവാരണ സേന സൈന്യം കോസ്റ്ഗാർഡ് ബി എസ് എഫ് എന്നിവയുടെ സേനാംഗങ്ങളും സ്ഥിതിഗതികൾ നേരിടാൻ സജ്ജരാണ് തീരപ്രദേശത്ത് പ്പുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതയ്ക്കാൻ ഇടയുളള സമല്ലങ്ങളിലെ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം പേളരി പ്രമാറ്റിപ്പാർപ്പിക്കുമെന്ന് ഗുജറാത്ത് ചീഫ് സെക്രട്ടറി അറിയിച്ചു കേരളം വായു ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ ഇല്ലെങ്കിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ ചില ജില്ലകളിൽ ശക്തമായ മഴ്യ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്

ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയുംപെട്ടെന്ന് അടുത്തുള്ള തീരത്ത് എത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ ബി എസ് എഫ് ബംഗ്ലാദേശിലെ ബോർഡർ ഗാർഡ്സ് മേധാവികൾ തമ്മിലാണ് ചർച്ച നടക്കുക

ഇരു രാജൃങ്ങളും തമ്മിൽ അതിർത്തി സംരക്ഷണ കാരൃങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നത് ലക്ഷ്യിമിട്ടാണ് സമ്മേളനം

നൈജീരിയയുടെ തലസ്ഥാനമായ അബൂജയിൽ കേന്ദ്രസഹമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം ലഭിച്ചു

ഇന്ന് നൈജീരിയൻ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ജനാധിപത്യ ദിനാഘോഷങ്ങളിൽ ശ്രീ

നാളെ ലാഗോസിൽ ഇന്ത്യൻ സമൂഹം വി

അതോടൊപ്പം കുട്ടനാട്ടിൽ മടവീഴ്ച തടയുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു

പാടശേഖര സമിതികളാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുകയെന്നും മന്ത്രി അറിയിച്ചു

മുസാഫർപ്പൂരിൽ മസ്തിഷ്ക്കത്തെ ബാധിക്കുന്ന മസ്തിഷ്ക വീക്കവും ഗയയിൽ ജപ്പാൻ ജ്വരവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ബീഹാർ ഗവൺമെന്റിനെ സഹായിക്കാനാണ് കേന്ദ്രം ഉന്നതതല സംഘത്തെ അയയ്ക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ബീഹാറിലെ സാഹചര്യം വിലയിരുത്തി

ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കും

ടി എം ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചാർജ്ജുകളും ഫീസുകളും പുനഃപരിശോധിക്കാനും പിലയിരുത്താനും പുറിസർവ്വ് ബാങ്ക് ആറംഗ കമ്മിറ്റി രൂപീകരിച്ചു നാഷണൽ പെയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്

ഡി എഫ് സി കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രീസ് ടാറ്റാ കമ്മ്യൂണിക്കേഷൻസ് പേയ്മെന്റ് സൊലൂഷൻസ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളായ കമ്മിറ്റിയിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് വി

മുൻ ഗവർണർ ഗോപാൽകൃഷ്ണഗാന്ധി ഇന്ന് ന്യൂഡൽഹിയിലാണ് പുരസ്കാരം നൽകുക സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ്

നിലവിൽ ചൈനീസ് വിദേശകാരൃ മന്ത്രാലയത്തിലെ നയതന്ത്ര ആസൂത്രണ വിഭാഗത്തിന്റെ മേധാവിയാണ് അദ്ദേഹം

സ്വർണവിലയിൽ മാറ്റമില്ല

ഇന്നലെ നടക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശ് ശ്രീലങ്ക മത്സരം ഉൾപ്പെടെ ലോകകപ്പിലെ മൂന്ന് കളികൾ കനത്ത മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു

ആതിഥേയരായ ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തും ഇന്ത്യ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു